കോവിഡ് വ്യാപന്ട് ഉചെറുക്കുന്നതിനായി സംസ്ഥാനങ്ങൾ ന് ജില്ലാതല കർമ്മപദ്ധതിക്ക് രൂപം നൽകണമെന്ന് കേന്ദ്ര സർക്കാർ

കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം

മുൻനിര പാർട്ടികളുടെ ദേശീയ നേതാക്കളെല്ലാം പ്രചാരണത്തിനായി കേരളത്തിൽ എത്തിയതോടെ സംസ്ഥാനം തിരഞ്ഞെടുപ്പ് ചൂടിലായി

തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കായി എ ഐ

സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഇന്ന് തൃശ്ശൂരിലെത്തും ജില്ലയിലെ വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പൊതുയോഗങ്ങളിലും റോഡ് ഷോകളിലും അവർ പങ്കെടുക്കും മുഖ്യമന്ത്രി പിണറായിട്ട് വിജയൻ ഇന്ന് ധർമ്മടത്തു പ്രചാരണത്തിനിറങ്ങും

ഡി ബിയുടെ ബോർഡ് ഓഫ് ഗവർണർമാരുടെ ആറാമത് വാർഷിക യോഗത്തിൽ വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കുകയായിരുന്നു ധനമന്ത്രി

സ്വകാര്യമേഖലയുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതു വഴി കൂടുതൽ ക്രിയാത്മകമായ ധനകാരൃ മാതൃകകൾ സൃഷ്ടിക്കാനാകുമെന്ന് ചൂണ്ടിക്കാട്ടിയ ധനകാര്യമന്ത്രി രാജ്യത്തിന്റെ സുസ്ഥിര അടിസ്ഥാന വികസനത്തിനായി പാരിസ്ഥിതി സൌഹൃവും സാമൂഹിക സുരക്ഷിതത്തം ഉറപ്പു വരുത്തുന്നതുമായ പദ്ധതികൾ രൂപം നൽകണമെന്നും നിർദ്ദേശിച്ചു

കോവിഡിനെതിരെ പോരാടുന്നതിൽ ഇന്ത്യ നടപ്പാക്കിയ പദ്ധതികൾ വിജയം കണ്ടതായും മഹാമാരിയുടെ ആഘാതം കുറയ്ക്കാൻ ഇതിലൂടെ സാധിച്ചതായും അവർ അഭിപ്രായപ്പെട്ടു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഓരോ കേസിന്റെയും രൂപരേഖ മേഖലാടിസ്ഥാനത്തിലുള്ള അവലോകനം വിലയിരുത്തൽ കണ്ടെയിൻമെന്റ് മേഖലകളുടെ രൂപീകരണം എന്നിവയാണ് ഇതിനോടൊപ്പമുള്ള മറ്റ് പ്രവർത്തനങ്ങൾ

മുഖ്യമന്ത്രി മമതാ ബാനർജി മത്സരിക്കുന്ന പൂർബോ മെദിനിപൂർ ജില്ലയിലെ നന്ദിഗ്രാം നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടെയാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്

തിരുവനന്തപുരത്ത് കാര്യവട്ടത്തെ ഗ്രീൻഫീൽ സ്റ്റേഡിയത്തിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന രണ്ടാമത്തെ പരിപാടി വൈകിട്ട് നാലിന് അവിടെ പൊതുസമ്മേളനം ആരംഭിക്കും

മാസ്ക് ധരിക്കുന്നതുൾപ്പെടെയുള്ള എല്ലാ കോവിഡ് മാർഗ്ഗരേഖയും കൃത്യമായി പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് വിമാനത്താവള ഓപ്പറേറ്റർമാരോട് ഡയറക്ട്ട്ട്രേറ്റ് ജനറൽ ആവശ്യപ്പെട്ടു

ഓസ്ട്രേലിയ ദക്ഷിണ കൊറിയ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾക്കൊപ്പം യു

ഇത് ബാധകമായ വ്യാപാരികൾ നികുതി ബാധൃതയുള്ള ചരക്കുകൾക്കും സേവനങ്ങൾക്കും കൂടാതെ വ്യാപാരി നൽകുന്ന ക്രെഡിറ്റ് ഡെബിറ്റ് നോട്ടുകൾക്കും ഇ ഇൻവോയ്സിംഗ് നടത്തണം ഇ ഇൻവോയ്സ് ബാധ്യതയുള്ള വ്യാപാരികൾ ചരക്കുനീക്കം നടത്തുന്നതിന് മുൻപ് തന്നെ ഇൻവോയ്സിംഗ് നടത്തണമെന്ന് സംസ്ഥാന ചരക്കു സേവന നികുതി വകുപ്പ് അറിയിച്ചു

വിവിധ സംസ്ഥാനങ്ങളിൽ ഓക്സിജൻ സിലിണ്ടറുകൾ സുഗമമായി എത്തിക്കുവാനും കോവിഡ് മഹാമാരിക്കെതിരെയുള്ള പ്പോരാട്ട് ശക്തമാക്കാനും തീരുമാനം സഹായിക്കുമെന്ന് കേന്ദ്ര്യ്ത്താ്ഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ട്വിറ്ററിലൂടെ അറിയിച്ചു

തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പ് ഇക്കാര്യത്തിൽ സർക്കാർ ഉത്തരവിറക്കിയിരുന്നു ഫെബ്രുവരിയിലെ കിറ്റ് വിതരണം ഇന്ന് അവസാനിക്കും

സ്വാതന്ത്ര്യ സമരത്തിന് രാജ്യത്തെ ഗിരിവർഗ്ഗ പിന്നോക്ക വിഭാഗങ്ങൾ നൽകിയ സംഭാവനകളെ ആസ്പദമാക്കിയ രചനയാണ് സനാതൻ

സ്കൂളുകളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഭാഗികമായി പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് സർക്കാർ വൃക്തമാക്കി ഓൺലൈൻ വഴിയുള്ള അധ്യാപനരീതിക്ക് മുൻഗണന നൽകുമെന്നും ക്ലാസ്സുകളിൽ നേരിട്ട് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള സൌകരൃം ഏർപ്പെടുത്തുമെന്നും സർക്കാർ അറിയിച്ചു